പ്രചോദനമാകട്ടെ സമാധാനപ്രതിമയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും

വിദേശനിക്ഷേപം സംബന്ധിച്ച നയം പാലിക്കണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം

ലോകത്ത് ശാന്തിയും സമാധാനവും പുലരാൻ ഈ പ്രതിമ പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി പ്രയത്നിച്ച വൃക്തിയായിരുന്നു ശ്രീ

വനിതകളുടെ വിദ്യാഭ്യാസത്തിലും പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാന്മന്ത്രി പറഞ്ഞു

ആഗോള സ്ഥിരത പങ്കാളിത്ത സുരക്ഷ നൂതനാശയ വളർച്ച എന്നിവയാണ് ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ ആശയം

തലസ്ഥാനമായ പറ്റ്നയിൽ വൈകിട്ട് നടന്ന ചടങ്ങിൽ ഗവർണർ ഫഗു ചൌഹാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തോടെ ശ്രീ

ജെ

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതിർന്ന ബിജെപി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു

മാരുടെ പിന്തുണയോടെയാണ് എൻ ഡി എ സഖ്യത്തിനു കീഴിൽ നിതീഷ് കുമാർ അധികാരം നിലനിർത്തിയത് ഇന്നലെ ചേർന്ന എൻ

എ നിയമസഭാകക്ഷി യോഗത്തിലാണ് ശ്രീ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്

ബിഹാറിന്റെ പുരോഗതിക്കായി എൻ ഡി എ കുടുംബം ഒത്തൊരുമിച്ചു പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

വെങ്കയ്യ നായിഡു എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ആശംസകൾ നേർന്നു പൌരന്മാർക്ക് വിവരങ്ങൾ നൽക്കുന്നതിലും അവരെ ശാക്തീകരിക്കുന്നതിലും ജനാധ്രിപ്പത്യ് സംരക്ഷിക്കുന്നതിലും മാധ്യമങ്ങൾ സുപ്രധാന പ്പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

മാധ്യമ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു രാജ്യത്തെ മാധ്യമങ്ങളുടെ നിരീക്ഷക സ്ഥാപനമായ ഇന്ത്യൻ പ്രസ് കൌൺസിലിന്റെ സ്ഥാപന ദിനമാണ് ദേശീയ മാധ്യമ ദിനമായി ആചരിക്കുന്നത്

ആത്മനിർഭർ ഇന്ത്യ കെട്ടിപ്പടുക്കാനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാകണം പുത്തൻ വിദ്യഭ്യാസ നയം ഈ നേട്ടം ലക്ഷ്യമാക്കി രൂപീകരിച്ചതാണ് നിരക്ഷരതയും വനിതകൾക്കെതിരെയുള്ള ആക്രമണ്ടങ്ങളും ഇല്ലാതാക്കാൻ വിദ്യാർഥികൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഹൈദരാബാദിലെ ഇന്ത്യൻ ബിസിനസ്സ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ഡെക്കാൻ ഡയലോഗ് പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ലോകമൊട്ടാകെയുള്ള പൊതുജനാരോഗൃ മേഖലയിൽ ആഗോള കൂട്ടായ്മകളുടെ നിക്ഷേപം ആവശ്യമാണ് തെക്ക് കിഴക്ക് ഏഷ്യ മേഖലയും ഇന്ത്യയും ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ തുടർച്ചയായി പരിശ്രമിക്കുകയാണെന്നും ഡോ ഹർഷ് വർധൻ പറഞ്ഞു

ഭക്തരുടെ സുരക്ഷയെ മുൻനിർത്തി വിപുലമായ ഒരുക്കങ്ങളാണ് ശബരിമലയിലുള്ളത്

സംവിധാനത്തിലൂടെ ദർശനം തീർഥാടനത്തിന്റെ ആദ്യ രണ്ടു ദിവസങ്ങളിൽ വെർചൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവരിൽ ദർശനത്തിന് എത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ഷിർദി സായിബാബ ക്ഷേത്രം പണ്ഢർപുരിലെ വിത്തൽ മന്ദിർ തുൾജ ഭവാനി ക്ഷേത്രം മാഹിം പള്ളി ഹാജി അലി ദർഗ എന്നിവ ഇന്ന് രാവിലെ തുറന്നു

തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുള്ള പൂജയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവ്യേന്ദ്രി സിംഗ് റാവത് എന്നിവർ പങ്കെടുത്തു യമുനോത്രി ധ്യാമിലേക്കുള്ള പാതകളും ഇന്ന് രാവിലെ അടച്ചു

ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യു എസ് നാവികസേനകളുടെ അത്യാധുനികവും സഹകരണ അടിസ്ഥാനത്തിൽ ഉള്ളതുമായ അഭ്യാസപ്രകടനങ്ങൾ രണ്ടാംഘട്ടത്തിൽ നടക്കും